ദരിദ്രരിൽ ദരിദ്രരുടെ വികസനമാണ് യഥാർത്ഥ ശാന്തിയെന്ന് മൻ കി ബാതിൽ പ്രധാനമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുമ്പോൾ നവകേരള സൃഷ്ടിക്ക് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയ്ൻ ശബരിമല വിഷയത്തിൽ എൻ

എസ് നിലപാട് തിരു ത്തണമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ ശബരിമലയിൽ ബി

പിക്കൊപ്പം സമരത്തിനില്ലെന്ന് എസ്

പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാ പ്പള്ളി നടേശൻ ശബരിമലയിൽ ഇ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് കെ

സി എം ഡി ടോമിൻ

തച്ചങ്കരി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളം ജില്ല കിരീടത്തിലേക്ക്

ദിനേശ് സുസ്ഥിര വികസനത്തിന് പാരമ്പര്യം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സന്തുലിതമായ ജീവിതശൈലിയെക്കുറിച്ച് മനസ്സിലാക്ക ണമെന്നും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ആദിവാസി സമൂഹത്തെക്കുറിച്ച് നാം കൂടുതൽ പഠിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അവർ വീടുകൾ നിർമ്മി ച്ചത് ചുറ്റുപാടിൽനിന്ന് ലഭിക്കുന്ന വസ്തുക്കൾകൊ ണ്ടാണ് വനഭൂമിയെ കാത്തുസൂക്ഷിക്കാൻ ബ്രിട്ടീഷുകാ രോട് പോരാടിയ ചരിത്രമാണ് അവർക്കുള്ളതെന്നും അവ രോട് നാം കടപ്പെട്ടിരിക്കുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദരിദ്രരിൽ ദരിദ്രരുടെ വികസനമാണ് യഥാർത്ഥ ശാന്തി യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാന്തിയെന്നും അതിന്റെ നിർവ്വചനം തന്നെ മാറിയിട്ടുണ്ടെന്നും പ്രധാന മന്ത്രി പറഞ്ഞു എല്ലായിടത്തും ശാന്തിയുണ്ടാകണം വിശ്വശാന്തിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് ഏറെ വില മ തി ക്ക പ്പെട്ട താ ണെന്നും അദ്ദേഹം പറഞ്ഞു സമർപ്പണ ബോധവും നിശ്ചയദാർഢ്യവുമാണ് പുതിയ തലമുറക്ക് വേണ്ടത്

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനും പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു

അമേരിക്കയിലെ പ്രശസ്തമായു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ രണ്ടിരട്ടി ഉയരം ഈ പ്രതിമക്കുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യൻ മണ്ണിൽ ലോകത്ത് ഏറ്റവും വലിയ പ്രതിമ വരുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭി മാനം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ കായിക വിഭാഗങ്ങളിൽ മെഡലുകൾ നേടിയവരെ പ്രധാ നമന്ത്രി അനുമോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെ യമാനഷയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി അനൌ പചാരിക കൂടിക്കാഴ്ച നടത്തി

ഇരുരാജ്യങ്ങളും തമ്മിൽ സൌഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് സംബന്ധിച്ച് വാർഷിക ഉച്ചകോടി യിൽ മോദിയും ആബെയും ചർച്ച നടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കു മ്പോൾ നവകേരള സൃഷ്ടിക്ക് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശം നൽകി യതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു പ്രള യത്തിന്റെ പാഠമുൾക്കൊണ്ട് പദ്ധതികൾ തയ്യാറാക്കാ നാണ് തദ്ദേശ സ്ഥയംഭരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്ത രവിൽ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഫേസ്ബുക് പോസ്റ്റിൽ പറഞ്ഞു ഉരുൾപൊട്ടൽ പ്രളയം കടലാക്ര മണം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടാവാൻ സാധ്യ തയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി മാപ് ചെയ്ത് ഓരോ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മന സ്സിലാക്കി തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണ മെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രളയത്തിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുടെ തൊഴിൽ ഉറപ്പാക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്ന തിനും പ്രൊജക്ടുകൾ ഏറ്റെടുക്കണം പ്രളയത്തിൽ തകർന്നതും കേടുപാടുകൾ പറ്റിയതുമായ പൊതു ആസ്തികളുടെ അറ്റകുറ്റ പണികൾക്കും പുനർ നിർമ്മാ ണത്തിനും ഉയർന്ന പരിഗണന നൽകണം ജൈവവൈ വിധ്യ മാനേജ്മെന്റ് കാലാവസ്ഥാ വൃതിയാനം പരി സ്ഥിതി സംരക്ഷണം ദുരന്തനിവാരണം എന്നീ മേഖല കൾക്ക് നിർബന്ധമായും വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്ക ണമെന്നും ഉത്തരവിൽ പറയുന്നതായി മുഖ്യമന്ത്രി അറി യിച്ചു

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു

അമിത്ഷാ യുടെ ഔദാര്യത്തിലല്ല ഇടത് ഗവൺമെന്റ് അധികാര ത്തിൽ വന്നതെന്നും ഭീഷണി വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല പ്രശ്നം കോടതി വഴി മാത്രമേ പരിഹരി ട ക്കാൻ കഴിയൂ കോടതി വിധിക്കെതിരെ നിൽക്കാൻ ഗവൺമെന്റിനാവില്ല കോടതി വിധിയുടെ പേരിൽ നിയ മവിരുദ്ധമായത് ആര് ചെയ്താലും കേസെടുക്കുമെന്നും അത് സാധാരണ പൊലീസ് നടപടി മാത്രമാണെന്ന് കോടി യേരി വ്യക്തമാക്കി നാമജപം നടത്തിയതുകൊണ്ടുമാത്രം ഇതുവരെ ആരുടെ പേരിലും കേസെടുത്തില്ലെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമല യുവതീ പ്രവേശന് വിഷയത്തിൽ ബി

ഡി ടോമിൻ ജെ തച്ചങ്കരി തിരുവനന്തപുരത്ത് പറഞ്ഞു നിലയ്ക്കൽ മുതൽ പമ്പ വരെയായിരിക്കും ബസ് സർവ്വീസ്

ഇതിനായി നിലയ്ക്കലിൽ പ്രത്യേക ട്രാൻസ്ഫോർമറും സ്ഥാപിക്കുമെന്ന് തച്ചങ്കരി അറിയി ച്ചു ശബരിമലയിൽ വിശിഷ്ട വ്യക്തികൾക്കായി പ്രത്യേക ബസ് ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറ ഞ്ഞു ശബരിമല യുവതീ പ്രവേശന വിഷ്ചയത്തിൽ വിവാദ പരാമർശം നടത്തിയെന്ന കേസിൽ അയ്യപ്പ ധർമ്മസേനാ പ്രസിഡന്റ് രാഹുൽ ഈശ്ചറിനെ പൊലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽവെച്ച് കൊച്ചി സിറ്റി പൊലീസാണ് രാവിലെ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ശബരിമല സന്നിധാനത്ത് യുവതികൾ പ്രവേ ശിച്ചാൽ രക്തം വീഴ്ത്തി ശബരിമല നട അടച്ചിടാൻ പദ്ധതി ഉണ്ടായിരു ന്നു വെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പമ്പയിൽ നാമജപ സമരം നടത്തിയതിന് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ശബരിമല മാളികപ്പുറം മേൽശാന്തിക്ക് ഭീഷണി ക്കത്ത് ലഭിച്ചതായി പരാതി ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയിൽ തന്ത്രിയെയും പരികർമികളെയും പിന്തുണച്ചതിന്റെ പേരിലാണ് ഊമക്കത്ത് ലഭിച്ചതെന്ന് മേൽശാന്തി അനീഷ് നമ്പൂതിരി ശബരിമലയിൽ പറ ഞ്ഞു ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പൊലീസിൽ പരാതി നൽകി സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും കുറഞ്ഞു

മഞ്ചേ ശ്വരത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയിലുള്ള കേസ് പിൻവലിക്കില്ലെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കേസ് എത്രയും വേഗം തീർപ്പായി കാണാ നാണ് ബി ജെ പിക്ക് ആഗ്ര ഹ മെന്ന് അദ്ദേഹം കാസർകോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എഫും യു

എഫും ചേർന്ന് കേസിന്റെ നടപടി കൾ വൈകിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കേസ് പരിഗണി ക്കവെ പി ബി അബ്ദുൾ റസാഖ് എം

എ മരിച്ച സാഹചരൃത്തിൽ കേസ് പിൻവലിക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി സുരേന്ദ്രനോട് ആരാഞ്ഞിരുന്നു പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് മറുപടി നൽകാമെന്നാണ് സുരേന്ദ്രൻ കോടതിയെ അറിയിച്ചത് തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കായിക മേള യിൽ എറണാകുളം ജില്ലയും സ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ജോർജ്ജ് ഹയർ സെക്കന്ററി സ്കൂളും കിരീടത്തിലേക്ക്

കുമരംപുത്തൂർ കെ

കായിക മേള സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കിരീടമുറപ്പാക്കി എറണാകുളം ജില്ല വിജയ ക്കുതിപ്പ് തുടരുന്നു

സീനിയർ ആൺകുട്ടികളുടെ ട്രിപ്പിൾ ജംപിൽ പാല ക്കാടിന്റെ സി സി അഖിൽ കുമാർ ദേശീയ റെക്കോർഡോടെ സ്വർണ്ണം നേടി മസ്ക്കറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാക്കിസ്ഥാനെ നേരിടും സെമി യിൽ ജപ്പാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ എത്തി യത്

എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ ഇന്ന് പൂനെ സിറ്റിയെ നേരിടും

സംസ്ഥാനത്തെ മൂന്ന് ദേശീയപാതാ വികസന പദ്ധ തികളുടെ പ്രവൃത്തി ഉദ്ഘാടനം മറ്റന്നാൾ തലശേരിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും തലശേരി മാഹി ബൈപാസ് കാസർകോട് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര റെയിൽവെ മേൽപ്പാലം പാലക്കാട് ജില്ലയിലെ നാട്ടുകാൽ പാണാവ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാ ക്ഷിത്വ ദിനമായ ഒക്ടോബർ ദ്ദന് ദേശീയ പുനരർപ്പണ ദിനം ആചരിക്കും